മുഖ്യമന്ത്രി പ്രളയം തകർത്ത കേരളത്തിന്റെ പുനർ നിർമാണത്തിന് ആവിഷ്കരിച്ച ക്രൌഡ് ഫണ്ടിംഗിന് തുടക്കമായി

ഒരുക്കുമെന്ന് മുഖ്യമന്തി സൂപ്പീർക്കോട്തി വിധി നടപ്പാക്കുകയാണ് ഗവൺമെന്റ് നയമെന്നും പിണറ്റിയി വിജയൻ ശബരിമല മണ്ഡല മക്ര്പിള്ക്ക് ഒരുക്കങ്ങളും നിലവിലെ ന് സാഹചര്യങ്ങളും ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് വിളിച്ച യോഗം തിരുവനന്തപുരത്ത് തുട്ടരുന്നു

മുഖ്യമന്ത്രി നാളെ യു

സിന്ധുവും കെ ശ്രീകാന്തും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും

ഇതിനൊപ്പം മുഖ്യമന്ത്രി ചെയർമാനായ ഉപദേശക സമിതിയ്ക്കും രൂപം നൽകിയിട്ടുണ്ട് ഈ ഉപദേശക സമിതിയിൽ വിവിധ മേഖലയിലെ വിദഗ്ദ്ധർ അംഗങ്ങളാകും ഇന്ന് ചേർന്ന മന്ത്രി സഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്

ശബരിമലയിലേയ്ക്കുള്ള വിശ്വാസികളുടെ വാഹനം തടയരുതെന്നും അവർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഗവൺമെന്റ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു വിശദാംശങ്ങളുമായി ഷീജ ഗണേഷ്

വിവിധ ഗവൺമെന്റ് വകുപ്പുകളും ഏജൻസികളും നടപ്പാക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ പോർട്ടലിൽ ഉണ്ടാകും കമ്പനികൾക്ക് തങ്ങളുടെ സി എസ് ആർ ഫണ്ടിൽ പദ്ധതികളെ ഉൾപ്പെടുത്താൻ കഴിയുംവിധമാണ് പോർട്ടൽ രൂപകൽപന ചെയ്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബിൽഡിംഗ് മെറ്റീരിയൽ ടെക്നോളജി പ്രൊമോഷൻ സെൽ അംഗീകരിച്ച ഏജൻസികളെയാവും പുനർനിർമാണ പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല ഏൽപിക്കുകയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബോർഡ് ആസ്ഥാനത്ത് ചേരുന്നൂ യോഗ്രത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ

തന്ത്രി സമാജം പന്തളം കൊട്ടാരം പ്രതിനിധികൾ ് അയ്യപ്പസേവാസംഘം അയ്യപ്പസേവാസമാജം ശബരിമല തന്ത്രിമാർ താഴ്മൺ കുടുംബം യോഗക്ഷേമസഭ എന്നിവരുമായാണ് ദേവസ്വം ബോർഡ് ചർച്ച നടത്തുന്നത്

ഇ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാലു ദിവസം നീളുന്ന യു എ ഇ സന്ദർശനത്തിന് നാളെ തുടക്കം പ്രളയത്തിൽ തകർന്ന കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള നിക്ഷേപം ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ യു

കേരള പുനർ നിർമ്മാണത്തിൽ പ്രവാസികളുടെ സഹായം ഉറപ്പാക്കുക ആശയങ്ങൾ സ്വീകരിക്കുക എന്നതും സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് വിവിധ വ്യവസായ പ്രമുഖരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും ട്ടടട മണൽ കൊല്ലം കൊല്ലം ജില്ലയിൽ പ്രളയകാലത്ത് നദികളോടു ചേർന്ന പ്രദേശങ്ങളിൽ അടിഞ്ഞ മണൽ പുനർനിർമാണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

കുത്തിവ്രെപ്പ് എടുക്കുന്നതിൽ പിന്നിലായിരുന്ന മലപ്പുറം ജില്ലയിൽ സംസ്ഥിന ആരോഗ്യവകുപ്പ് നടത്തിയ ഊർജ്ജിത പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ ചരിത്ര നേട്ടം

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കെ ശങ്കർ റെഡ്ഡി ഉൾപ്പെടെ നാലുപേർക്ക് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനകയറ്റം നൽകിയതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി നടപടി

ബാലൻ മൌലികാവകാശങ്ങൾക്ക് മുകളിലാണ് വിശ്വാസങ്ങളെന്ന് കരുതുന്ന ചിലരാണ് കേരളത്തിന്റെ നവോത്ഥാന ആശയങ്ങളെ പിന്തള്ളാൻ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എ

പാലക്കാട് തരൂരിൽ കെ

കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് ഓഡിറ്റോറിയ നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇന്ന് വൈകുന്നേരം കനകക്കുന്ന് തമ്പാനൂർ ബസ് സ്റ്റാന്റ് എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ് തെരുവുനാടകം എന്നിവ ് അവ്തരിപ്പിക്കും

സി തിരുവനന്തപുരത്ത് കെ എസ് ആർ

മറ്റു ഇടങ്ങളിൽ നിന്ന് എത്തുന്ന ബസ്സുകളെ ജീവനക്കാർ തടണു

യുവതികൾ ശബരിമലയിലേക്ക് എത്തുന്നുണ്ടോ എന്നറിയാനാണ് വാഹന പരിശോധന

ഇതിനിടെ കെ എസ് ആർ ടി സി ബസിൽ പമ്പയിലേക്ക് പോയിവന്ന മാദ്ധ്യമപ്രവർത്തകരെ സമരക്കാർ തടഞ്ഞു

കൂടുതൽ വനിതാ പൊലീസിനെ നിലയ്ക്കലിൽ വിന്യസിച്ചു

ഡി

അമ്പലങ്ങളിലും പള്ളികളിലും സ്ത്രീകൾ കയറണമെന്നാണ് ശ്രീ

എന്നാൽ ഇതിനെ നേരിടുന്നത് വിശ്വാസികളാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി

അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കാലികളെ പരിശോധിക്കാൻ അതിർത്തി ചെക്ക്പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചു നിരീക്ഷണം ഊർജിതമാക്കും

വനിതാ സിംഗിൾസിൽ ഇന്ത്യയ്ക്കുവേണ്ടി പി

സിന്ധുവും സൈനാ നെഹ്വാളും മത്സരത്തിനിറങ്ങും ആദ്യ റൌണ്ടിൽ സിന്ധു അമേരിക്കൻ താരം ബിവൻ ഷാങ്ങിനെ നേരിടും

പുരുഷ സിംഗിൾസിൽ കെ ശ്രീകാന്ത് സായ് പ്രണീത് സമീർ വർമ എന്നിവരും മത്സരരംഗത്തുണ്ട്

ട്രസ്റ്റ് ചെയർമാൻ എം

ബ്രിഡ്ജിന്റെ നിർമാണ പ്രവർത്തനങ്ങൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇയാളിൽ നിന്ന് അഞ്ചുലക്ഷം രൂപയോളം വിലവരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തു